സുരക്ഷ നിർദ്ദേശത്തിന്റെ ഭാഗമായുള്ള ക്രമീകരണം മാത്രമാണ് അമർനാഥ് തീർത്ഥാടനത്തിന് ഏർപ്പെടുത്തിയതെന്ന് ജമ്മുകശ്മീർ ഗവർണർ

ഛത്തീസ്ഗഢിൽ സുരക്ഷാസേന്യുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഏഴ് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു

ന്യൂഡൽഹിയിൽ ബിജെപി എം പി മാർക്കായി സംഘടിപ്പിച്ച ദിദിന ശിൽപശാല പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു

മാധ്യമ പ്രവർത്തകൻ കാറിടിച്ച് മരിച്ച സംഭവത്തിൽ സർവ്വെ ഡയറക്ടർക്കെതിരെ പൊലീസ് കേസെടുത്തു

അഭ്യൂഹങ്ങളിൽ വിശ്വസിക്കരുതെന്നും സമാധാനം നിലനിർത്തണമെന്നും അദ്ദേഹം രാഷ്ട്രീയ പാർട്ടികളോട് അഭ്യർത്ഥിച്ചു അമർനാഥിലേക്കുള്ള തീർത്ഥാടനം താൽക്കാലികമായി അവസാനിപ്പി ക്കാൻ കഴിഞ്ഞ ദിവസം സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചിരുന്നു

കനത്ത മണ്ണിടിച്ചിലും മോശം കാലാവ്സ്ഥയും കാരണം അമർനാഥ്യാത്ര മുതൽ താൽക്കാലികമായി റദ്ദാക്കുമെന്ന് നാളെ നേരത്തെ അറിയിച്ചിരുന്നു

സുരക്ഷാകാരണങ്ങളാലാണ് യാത്ര അവസാനിപ്പിച്ചത്

ഭീകരാക്രമണ സാധ്യതയുണ്ടെന്ന രഹസ്യാന്വേഷണ ഏജൻസികളുടെ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിലാണ് യാത്ര അവസാനിപ്പിക്കുന്നത് അമർനാഥിലേക്കുള്ള വാർഷിക തീർഥയാത്ര അട്ടിമറിക്കാൻ പാകിസ്താൻ പദ്ധതിയിടുന്നുണ്ടെന്ന് വിവരം ലഭിച്ചെന്ന് സൈനൃം അറിയിച്ചതിന് മണിക്കൂറുകൾക്കകമാണ് യാത്ര വെട്ടിക്കുറച്ചുവെന്ന് കശ്മീർ ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്

അമർനാഥ് പാതയിൽ നിന്ന് സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും പിടിച്ചെടുത്തായി സൈന്യം നേരത്തെ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സുരക്ഷ മുൻനിർത്തി തീർഥാടനം അവസാനിപ്പിക്കാനുള്ള നിർദേശം എത്തിയിരിക്കുന്നത് ന്യൂസ്ഡെസ്ക് ആകാശവാണി

നക്സൽ വേട്ടയ്ക്കിറങ്ങിയ സുരക്ഷാ സംഘത്തിനു നേരെയാണ് ആക്രമണം

രണ്ടു തീവ്രവാദികൾ കൊല്ലപ്പെട്ടു

ബാരാമുള്ളയിലെ സോപ്പോറിൽ ഇന്ന് പുലർച്ചെ നടന്ന ഏറ്റുമുട്ടലിലും ഷോപ്പിയാനിൽ ഇന്നലെ രാത്രി നടന്ന ആക്രമണത്തിലുമാണ് കൊല്ലപ്പെട്ടു രണ്ടു തീവ്രവാദികൾ ഷോപ്പിയാനിലാണ് സൈനികന് ജീവൻ നഷ്ടമായത് സോപ്പോറിൽ തെരച്ചിൽ തുടരുകയാണ്

പ്രദേശത്ത് ഭീകരർ ഒളിച്ചിരി ക്കുന്നുവെന്ന വിവരത്തെ തുടർന്നാണ് രാഷ്ട്രീയ റൈഫിൾസ് സ്പെ ഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ജമ്മുകശ്മീർ പോലീസ് സി

എഫ് എന്നിവരടങ്ങിയ സംഘം തെരച്ചിൽ നടത്തിയത്

ഇൻഡ്യൻ് സംഘത്തെ പ്രതിരോധ സെക്രട്ടറി സഞ്ജയ് മിത്രയും യു എസ്സ് സംഘത്തെ പ്രതിരോധ അണ്ടർ സെക്രട്ടറി ജോൺ റൂഡുമാണ് നയിച്ചത്

ചർച്ച സംസ്ഥാനങ്ങളുടെയും കേന്ദ്ര ഭരണപ്രദേശങ്ങളുടെയും വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾ സംബന്ധിച്ച് എം പി മാർ നൽകിയ നിർദ്ദേശങ്ങൾ പരിശോധിക്കുമെന്ന് മന്ത്രി അറിയിച്ചു

സി

ഇന്ത്യ മ്യാൻമാർ തായ്ലാന്റ ത്രി കോണ ഹൈവേ കംബോഡിയായിലേക്കും ലാവോസിലേക്കും വിയറ്റ്നാ മിലേക്കും നീട്ടുമെന്നും മന്ത്രി പറഞ്ഞു ഇന്ത്യയ്ക്ക് പുറമെ ആസിയാൻ രാജ്യങ്ങളായ കമ്പോഡിയ ലാവോസ് മ്യാർമർ തായ്ലാന്റ് വിയറ്റ്നാം എന്നീ രാജ്യങ്ങളാണ് എം

സി എന്നു ചുരുക്കപേരിൽ അറിയപ്പെടുന്ന കൂട്ടായ്മയിലുള്ളത്

പിമാർക്കായി സംഘടിപ്പിക്കുന്ന ശിൽപശാലയ്ക്ക് ബി

പ്രധാനമന്ത്രിക്ക് പുറമെ കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ രാജ്നാഥ് സിംഗ് ബി ജെ

ദേശീയ അധ്യക്ഷൻ ജെ

നദ്ദ എന്നിവരും എം

ലോക്സഭയിലെയും രാജ്യസഭയിലെയും എല്ലാ ബി

പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ സ്ഥിതി വിശകലനം ചെയ്യുന്ന യോഗത്തിൽ നമോ സംബന്ധിച്ച് ആപ്പ് എം

മാർക്ക് പരിശീലനം നൽകും

ഒരു റിപ്പോർട്ട് ഇന്ത്യയും ഗുനിയയും തമ്മിലുള്ള പരസ്പര ബന്ധത്തിന്റെയും ഇരുരാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള സൌഹൃദവും പങ്കാളിത്തവും പ്രോത്സാഹിപ്പിച്ചതിന്റെയും അടിസ്ഥാന ത്തിലാണ് അംഗീകാരം ഇന്ത്യയിലെയും ഗുനിയയിലെയും ജനങ്ങൾക്കായി പുരസ്കാരം സമർപ്പിക്കുന്നുവെന്ന് ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു

പാരമ്പര്യ വൈദ്യരംഗത്തെ സഹകരണം ഇ വിദ്യാഭാരതി ഇ ആരോഗ്യഭാരതി നെറ്റ്വർക്ക് പദ്ധതി പുനരുപയോഗ ഊർജ്ജം എന്നിവ സംബന്ധിച്ച കരാറുകളിലാണ് ഒപ്പുവച്ചത്

പശ്ചിമ ആഫ്രിക്കയിലെ ത്രിരാഷ്ട്ര സന്ദർശനം അവസാനിപ്പി ക്കുന്നതിനു മുൻപ് ഇന്ന് ഇൻഡ്യൻ സമൂഹം സംഘടിപ്പിക്കുന്ന ചട ങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും

താനെ പാൽഘർ റായ്ഗഡ് എന്നി വിടങ്ങളിൽ ഇന്നു രാവിലെ മുതൽക്കേ തുടർച്ചയായി മഴ പെയ്യുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനമനുസരിച്ച ഈയാഴ്ച മുംബൈ യിൽ തീവ്ര മഴയ്ക്കും സാധ്യതയുണ്ട്

റായ്ഗഡ് ജില്ലയിലെ മിക്ക നദികളും അപകടനില കവിഞ്ഞൊഴുകുകയാണെന്ന് ആകാശവാണി പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു അണക്കെട്ടുകൾ തുറന്നതിനെ തുടർന്ന് കൃഷ്ണ വാർണ നദികളിൽ നിന്നും സമീപഗ്രാമങ്ങളിലേക്ക് വെള്ളം കയറി

എം ബഷീർ കാറിടിച്ച് മരിച്ച സംഭവത്തിൽ സർവേ വകുപ്പ് ഡയറക്ടർ ശ്രീറാം വെങ്കിട്ടരാമനെതിരെ പൊലീസ് കേസെടുത്തു മനഃപൂർവ്വമല്ലാത്ത നരഹത്യ അലക്ഷ്യമായി വാഹനമോടിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തത്

ശനിയാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷന് സമീപം പബ്ലിക് ഓഫീസിന് മുന്നിൽ വച്ച് അപകടമുണ്ടായത് റോഡരികിൽ നിർത്തിയിട്ട ബഷീറിന്റെ ബൈക്കിന് പിറകിൽ സർവേ ഡയറക്ടർ ശ്രീറാം വെങ്കിട്ടരാമന്റെ കാർ ഇടിക്കുകയായിരുന്നു എന്നാണ് സാക്ഷിമൊഴി എന്നാൽ സംഭവത്തിൽ പ്രതികളുടെ മെഡിക്കൽ റിപ്പോർട്ട് എടുക്കുന്നതിൽ പൊലീസിന്റെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടായെന്ന ആരോപണം ശക്തമാണ് മദ്യത്തിന്റെ ഗന്ധമുണ്ടായിരുന്നതായി ദൃക് സാക്ഷികൾ മൊഴിനൽകിയിട്ടും ആദ്യഘട്ടത്തിൽ രക്തസാമ്പിൾ പരിശോധിക്കാൻ പൊലീസ് തയ്യാറായില്ലെന്നാണ് ആരോപണം വാഹനത്തിൽ ശ്രീറാമിനൊപ്പമുണ്ടായിരുന്ന യുവതിയെ ആദ്യം വീട്ടിലേക്ക് അയച്ചെങ്കിലും പിന്നീട് വിളിച്ചുവരുത്തി മൊഴി രേഖപ്പെടുത്തി ശ്രീറാമാണ് കാറോടിച്ചതെന്ന് യുവതി മൊഴി നൽകിയെന്നാണ് റിപ്പോർട്ട്

ബഷീറിന്റെ കുടുംബത്തിന്റെ സംരക്ഷണം ഗവൺമെന്റ് ഏറ്റെടുക്കണം ഭാര്യക്ക് ഗവൺമെന്റ് ജോലി നൽകണമെന്നും പ്രതിപക്ഷനേതാവ് ആവശ്യപ്പെട്ടു